ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ബംഗ്ലാദേശിന് വിജയം ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ പോരാട്ടം

രാജ്യത്ത് പുതിയ ഗവൺമെന്റ് അധികാരമേറ്റ ക്കേഷമുള്ള ആദൃ ഉന്നതതല സന്ദർശനമാണിത് വിദ്ദേശകാര്യമന്ത്രി ഡോ

ആഗോള മേഖലാ സംഭവ വികാസങ്ങളും ചർച്ചയാകും

നിതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാറാണ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത് നിതി ആയോഗ് അംഗം വി

ഇ ഒ അമിതാഭ് കാന്ത് ആരോഗ്യ സെക്രട്ടറി പ്രീതി സുദൻ ലോകബാങ്ക് പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനവും നയപരമായ ഇടപെടലുകളുടെ അനന്തര ഫലവും ചർച്ച ചെയ്യുന്നതാണ് റിപ്പോർട്ട് സംസ്ഥാനങ്ങളിലേയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേയും രണ്ട് വർഷത്തെ പ്രവർത്തനങ്ങളുടെ പൊതു വിലയിരുത്തലും റിപ്പോർട്ടിലുണ്ട് ലോക ബാങ്കിന്റെ സാങ്കേതിക സഹായത്തോടെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്

ഇതിനായി സാരഥി എന്ന കംപ്യൂട്ടർ ആപ്തിക്ക്ക്ഷ്ൻ കേന്ദ്ര ഗതാഗതമന്ത്രാലയം സജ്ജമാക്കി

സ്മാർട്ട് കാർഡ് മാതൃകയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകളാകും ഇനി മുതൽ ലഭിക്കുക ദേശീയ വിവര ശേഖര കേന്ദ്രം എൻ

സി വികസിപ്പിച്ച സാരഥി ആപ്തിക്കേഷനിൽ ഇന്ത്യയിലെ മുഴുവൻ ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും വിവരങ്ങൾ ലഭ്യമാകും

ഇത്തരത്തിൽ കേന്ദ്രീകൃത സംവിധാനം നിലവിൽ വരുമ്പോൾ ഈ മേഖലയിലെ പല തട്ടിപ്പുകളും തടയാനാകുമെന്നും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഈ കേന്ദ്ര ധനമന്ത്രി നിർമലാ സീതാരാമൻ ലോക്സഭയെ ്രേഖ്വാമൂലം അറിയിച്ചതാണ് ഇക്കാര്യം ഇ വേ ബിൽ സംവിക്കുന്നു മെച്ചപ്പെടുത്തുന്നതിനായി ജി

ടി കൌൺസിലിലെ ഉദ്യോഗസ്ഥ സമിതിയാണ് ഇക്കാര്യം പരിശോധിക്കുന്നത്

ശുപാർശ ജി

ടി കൌൺസിലിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി അറിയിച്ചു

ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് ഹിസ്ബുൾ മുജാഹിദീനും മയക്കുമരുന്നു കടത്തുകാരുമായുള്ള ബന്ധം വ്യക്തമായെന്ന് ജമ്മു ഇൻസ്പെക്ടർ ജനറൽ എം

എന്നിവിടങ്ങളിലും അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഇതിൽ പങ്കാളികളാണ്

സെയിനിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുശോചിച്ചു

പി എം

എ രാജസ്ഥാൻ ബിജെപി അദ്ധ്യക്ഷൻ എന്നീ നിലകളിൽ മികച്ച സേവനമാണ് ഇദ്ദേഹം നടത്തിയതെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു പറഞ്ഞു

ഡിജിറ്റൽ വൽക്കരണം ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയുക്മാർട്ടങ്ങൾ ഉണ്ടാക്കുമെന്നും കൌൺസിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പ്രിയുന്നു

ബിജെപി സ്ഥാനാർത്ഥിയായി വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ഇന്ന് നാമനിർദ്ദേക പത്രിക സമർപ്പിക്കും

കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ സ്മൃതി ഇറാനി എന്നിവർ ലോക്സഭാ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്

വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന ശ്രീ ജയ്ശങ്കർ ഇന്നലെയാണ് ഔദ്യോഗികമായി ബിജെപിയിൽ അംഗത്വമെടുത്തത്

നിലവിലെ പ്രതിപക്ഷ നേതാവും ടി ഡി പി അധ്യക്ഷനുമായ എൻ ചന്ദ്രബാബു നായിഡുവിന്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ് കെട്ടിടം പരാതി പരിഹാരത്തിനായുള്ള പ്രജ വേദിക എന്ന കെട്ടിടം ശ്രീ

ചട്ടലംഘനം നടത്തിയാണ് കെട്ടിട്ട്ട് ക്ടിർമിച്ചതെന്ന കാരണത്താലാണ് പൊളിച്ചുനീക്കുന്നതെന്ന് ശ്രീ

ഇറാന്റെ പരമോന്നത നേതാവ് അയത്തൊള്ള അലി ഖമനേയിക്കും മുതിർന്ന നേതാക്കൾക്കും ഉപരോധം ബാധകമാക്കിയിട്ടുണ്ട്

എസിന്റെ നിയമ പരിധിയിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുമായി ഇവർക്ക് ഇനി ബന്ധപ്പെടാനാകില്ല

കെട്ടിട നിർമ്മാണ അനുമതി നൽകുന്നതിൽ അഴിമതിയും ക്രമക്കേടും കാലതാമസവും കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഡയറകൂർ സർക്കുലറിലൂടെ ഉത്തരവായി

കെട്ടിട നിർമ്മാണ അനുമതിക്കായി കെട്ടിക്കിടക്കുന്ന എല്ലാ അപേക്ഷകളിലും അടുത്ത മാസം പത്തിന് മുമ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ ഉചിത തീരുമാനം എടുത്ത് തീർപ്പാക്കണം

സമയപരിധിക്കുള്ളിൽ കെട്ടിട നിർമ്മാണ അനുമതി ലഭിക്കാത്തവരുടെ പരാതി പരിശോധിക്കാനുള്ള കമ്മിറ്റി എല്ലാ ഗ്രാമപഞ്ചായത്തിലും രൂപീകരിച്ചിട്ടുണ്ടെന്നും യോഗം ചേർന്ന് നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും പെർഫോർമൻസ് ഓഡിറ്റ് വിഭാഗം പരിശോധിച്ച് ഉറപ്പാക്കണം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും കെട്ടിട നിർമ്മാണചട്ടങ്ങൾ പ്രകാരം അനുമതി വാങ്ങിയും വാങ്ങാതെയും നിർമ്മാണം പൂർത്തീകരിച്ച പല കെട്ടിടങ്ങൾക്കും കെട്ടിട നമ്പർ ലഭിക്കാൻ വൈകുന്നതായി പരാതിയുണ്ട്

മേഖലയിൽ സമാധാനം നിലനിർത്താൻ സന്നദ്ധ സംഘടനകൾ പ്രാദേശിക കച്ചവടക്കാർ ക്ലബ്ബുകൾ എന്നിവരുമായി ബരക്പോര പോലീസ് കമ്മീഷണർ മനോജ് ചർച്ച നടത്തി

ഇന്ന് ആതിഥേയരാ്യ ഇംഗ്ലണ്ട് ആസ്ട്രേലിയയുമായി ഏറ്റുമുട്ടും